സോൾ സമാധാന പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി പെരിയ ഇരട്ടക്കൊലയെ തുടർന്ന് നടത്തിയ മിന്നൽ ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമന്ന് ഹൈക്കോടതി

മരിച്ചവരുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കില്ല പെരിയ കേസ് ക്രൈം ബ്രാഞ്ചിന് കൈമാറിയത് അന്വേഷണം അട്ടിമറിക്കാനെന്ന് കെപിസിസി പ്രസിഡൻ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനും വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷാ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഊട്ടിയുറപ്പിക്കാനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയിലെത്തി

ദക്ഷിണകൊറിയൻ പ്രഥമ വനിത കിം ജംഗ് സൂക്കുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയയെന്ന് കൂടിക്കാഴ്ചക്ക് ശേഷം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പ്പറഞ്ഞു

രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി പറ ഞ്ഞു സിയോൾ പീസ് പ്രൈസ് കൾച്ചറൽ ഫൌണ്ടേഷൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് നേരത്തെ സോളിലെ ദേശീയ സെമിത്തേരിയിൽ കൊറിയൻ ഭടന്മാർക്ക് പ്രധാനന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു കാസർക്കോട്ടെ ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് സംസ്ഥാ നത്ത് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താ ലിലുണ്ടായ നഷ്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡണ്ട് ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട എല്ലാ കേസു കളിലും ഡീൻ കുര്യാക്കോസിനെ പ്രതി ചേർക്കണം കാസർകോട് ജില്ലയിലെ നഷ്ടം യു ഡിഎഫ് ജില്ലാ നേതാ ക്കളായ കമറുദ്ദീൻ ഗോവിന്ദൻ നായർ എന്നിവരിൽ നിന്ന് ഈടാ ക്കാനും ഹൈക്കോടതി നിർദേശിച്ചു നഷ്ടം കണക്കാക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെ ട്ടു

അടുത്തമാസം ആറിന് കേസ് കോടതി പരിഗണിക്കും

അതേസമയം ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്നത് അനിവാ രൃമായ സാഹചരൃത്തിലാണെന്നും അത് കോടതിയെ ബോധൃ പ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പിന്നീട് മാധ്യ മങ്ങളോട് പറഞ്ഞു പെരിയയിലെ ഇരട്ടക്കൊലപാതകം ഹീനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിനെ ന്യായീകരിക്കാൻ കഴി യില്ലെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കു മെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ടെന്ന ആവശ്യം സിപിഐഎമ്മിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാസർക്കോട്ട് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാ സ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്നത്തെ ആവശ്യം

രണ്ടു പേരെ പൊലീസ് അറസ്റ്റു ചെയ്തു നീക്കീ കാസർകോട് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാ നുള്ള് തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിൻമാറിയതായി റിപ്പോർട്ടുകൾ നേരത്തെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി താത്പര്യം പ്രകടിപ്പിച്ചിരുന്നു

എന്നാൽ ഡിസിസി നേതൃത്വത്തിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ലെന്നും അതിനാൽ സന്ദർശനം ഉപേക്ഷിക്കുക യാണെന്നും സിപിഐഎം ജില്ലാ നേതാക്കൾ അറിയിച്ചു കാസർക്കോട് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ച തിൽ തെറ്റില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി കാസർക്കോട്ടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കാണ് അദ്ദേഹം വീടു കൾ സന്ദർശിച്ചത് കൊല്ലപ്പെട്ടവരുടെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല ഇരട്ടകൊലപാതകം ഇടതു മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലെന്നും മന്ത്രി സുനിൽ കുമാർ സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു

ആരും നല്ല പിള്ള ചമയാൻ നോക്കേണ്ടതില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടു പ്പിനെ വിഷയം ബാധിക്കില്ലെന്നും അദ്ദേഹം സ്വകാര്യചാനലിനോട് പറഞ്ഞു പെരിയ ഇരട്ടക്കൊലക്കേസ് ക്രൈംബ്രാഞ്ചിന്റ് കൈമാറിയത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇതിനായി രഹസ്യ ചർച്ച നടത്തിയതായി അദ്ദേഹം ആലപ്പുഴയിൽ ആരോ പിച്ചു ഗവൺമെന്റും സിപിഐഎമ്മും പ്രതിരോധത്തിലാകുമ്പോൾ കേസന്വേഷണത്തിന് ഐ ജി ശ്രീജിത്തിനെയാണ് ഏൽപ്പിക്കു ന്നത് ടി പി ചന്ദ്രശേഖരൻ വാരാപ്പുഴ കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് പെരിയ ഇരട്ട ക്കൊലക്കേസ് അന്വേഷണ ചുമതല ശ്രീജിത്തിന് നൽകിയത് ഇതിന്റെ ഭാഗമാണെന്നും മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന കാഞ്ഞങ്ങാട്ടെ പരിപാടി അലങ്കോലപ്പെടുത്തുമെന്ന് വാട്സ്അപ്പ് സന്ദേശം വിട്ട യുവാവ് അറസ്റ്റിൽ പടന്നക്കാട് സ്വദേശിയെയാണ് പൊലീസ് അറസ്റ്റു ചെയ്തത്

അഭിഭാഷകർ തയ്യാറാണെ ങ്കിൽ കേസ് എപ്പോൾ വേണമെങ്കിലും പരിഗണിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹോളി അവധിക്കു ശേഷം കേസ് പരിഗണിക്കാമെന്ന് മുഖൃ മന്ത്രി പിണറായി വിജയനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി പിജയൻ ഉൾപ്പെടെയുള്ളവരെ കേസിൽ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടുതി വിധിക്കെതിരെ സിബിഐ നൽകിയ ഹർജിയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിനെ തിരെ കസ്തൂരിരംഗൻ അയ്യർ ആർ ശിവദാസ് എന്നിവർ നൽകിയ ഹർജികളുമാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത്

മലപ്പുറം ഗവൺമെന്റ് കോളജിലെ രണ്ട് വിദ്യാർഥികളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു കോളജിൽ പ്രവർത്തിക്കുന്ന റാഡിക്കൽ സ്റ്റുഡന്റ് സ് ഫോറം എന്ന സംഘടനയുടെ പ്രവർത്തകരായ വിദ്യാർഥികളെയാണ് അറസ്റ്റ് ചെയ്തത് പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ കാശ് മീരികൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന പോസ്റ്ററിന്റെ പേരിലാണ് നടപടി

ബാരാമുള്ളയിലെ വാർപോറ മേഖലയിൽ തിര ച്ചിൽ നടത്തുന്ന സൈന്യത്തിനു നേരെയാണ് ഭീകരർ വെടിവെച്ച തെന്ന് സൈനിക വൃത്തങ്ങൾ ശ്രീനഗറിൽ വ്യക്തമാക്കി ഏറ്റുമു ട്ടൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഐസിഐസിഐ ബാങ്ക് മുൻ മേധാവി ചന്ദകൊച്ചാറിനെതിരെ സിബിഐ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ചന്ദ് കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാർ വീഡിയോ കോൺ എംഡി വേണുഗോപാൽ ധൂത് എന്നിവർക്കെതിരെയും ലുക്കൌട്ട് നോട്ടീസുണ്ട് പെരിന്തൽമണ്ണയിലെ സ്ഥകാര്യ ആശുപത്രിയിൽ തീപിടിത്തം ജനറേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടിച്ചത് ആശുപത്രിയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിച്ചു അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി തീ നിയന്ത്രണവിധേയമാക്കി ആളപായമുള്ളതായി റിപ്പോർട്ടുകളില്ല തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അല്പസമയത്തിനകം സംസ്ഥാനത്തെ ത്തും പാലക്കാട്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രഭാരിമാർ വിസ്താരക് ബിജെപി കൺവീനർമാർ ജില്ലാ അധ്യക്ഷൻമാർ എന്നിവരുടെ യോഗത്തിലും കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതു സമ്മേളനത്തിലും അമിത് ഷാ പങ്കെടുക്കും

പുൽവാമ ഭീകരാക്രമണ ത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാക്കിസ്ഥാനുമായുള്ള മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത്

ചെന്നൈയിൽ പ്രോ വോളി ലീഗ് ഫൈനലിൽ ഇന്ന് കാലി ക്കറ്റ് ഹീറോസും ചെന്നൈ സ്പാർട്ടൻസും ഏറ്റുമുട്ടും വൈകീട്ട് ഏഴിനാണ് മത്സരം

നിന്ദൃമായ ഈ ഭീകരപ്രവൃത്തി നടത്തിയവരേയും ആസൂ ത്രണം ചെയ്തവരേയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ മെന്ന് സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു കണ്ണൂർ കല്ല്യാട്ട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയൂർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉത്തര മലബാറിന്റെ വിക സനത്തിനും ആയൂർവേദ മേഖലക്കും വലിയ സംഭാവനയായി മാറുമെന്ന് കരുതപ്പെടുന്ന കേന്ദ്രം ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ സംരംഭമാണ് ആയൂർവേദ അറിവും ലോകമെങ്ങുമുള്ള പാരമ്പരൃ ചികിത്സാ രീതികളും പ്രദർശിപ്പി ക്കുന്ന അന്താരാഷ്ട്ര മ്യൂസിയവും ഇതിന്റെ ഭാഗമായി നിലവിൽ വരും കണ്ണൂർ മാങ്ങാട്ട് പറമ്പിൽ ആരംഭിക്കുന്ന സ്റ്റാർട്ട് അപ്പ് ഇൻക്യു ബേഷൻ സെന്റർ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും സാങ്കേതിക് വിദ്യയുടെ സഹായത്തോടെ മലബാറിലെ പരമ്പരാഗത വൃവസായങ്ങളുടെ വളർച്ചക്ക് വഴിയൊ രുക്കുകയും യുവ സംരംഭകരുടെ സ്റ്റാർട്ട് അപ്പ് ആശയങ്ങൾക്ക് അവസരമൊരുക്കുകയുമാണ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളജിൽ നിർമാണം പൂർത്തിയാക്കിയു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ നടക്കും മാതൃയാനം പദ്ധതി ക്ഷയരോഗ പരിശോധന കൾച്ചറൽ ലാബ് പീഡിയാട്രിക് കാർഡിയോതൊറാസിക് സർജറി വിഭാഗം സിടി സ്കാൻ യൂണിറ്റ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷ ത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന എല്ലാ പരിപാടി കളും യു ഡി എഫ് ബഹിഷ്കരിക്കും പെരിയ ഇരട്ടക്കൊലപാ തകത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പ്രൊഫ എ ഡി മുസ്തഫ അറിയിച്ചു

കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കണ്ടറി സ്കൂൾ മൈതാനത്ത് ആരം ഭിക്കുന്ന യാത്ര സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട രണ്ട് ലക്ഷമാക്കി ഉയർത്തിയ നടപടി സ്വാഗതാർഹമാണെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു ഓരോ ൂവർഷവും ഹജ്ജിന് ആഗ്രഹിച്ചിട്ടും കാട്ട ഇല്ലാത്തിനാൽ പിന്തള്ളപ്പെടുന്ന അനേകം പേരുണ്ട് അവർക്ക് ഈ തീരുമാനം ആശ്വസകരമാകും പുതുക്കിയ കാട്ട ഈ വർഷം തന്നെ നടപ്പിലാക്ക ണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രികെ കെ ശൈലജ നിർവഹിച്ചു

മലപ്പുറം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗൃ കേന്ദ്ര ത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റ് മന്ത്രി എ

മൊയ്തീൻ നാളെ ഉദ്ഘാടനം ചെയ്യും